കോടതിയുടെ മേൽനോട്ടത്തിൽ ഇടപാട് അന്വേഷിക്കണമെന്ന ഹർജികൾ ഡിവിഷൻബെഞ്ച് തള്ളി

അനിഷ്ടസംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല

റഫേൽ യുദ്ധ വിമാനങ്ങൾ വാങ്ങാനെടുത്ത തീരുമാനത്തിൽ ഒരിടത്തും സംശയാസ്പ ദമായ സാഹചര്യമില്ലെന്നും കോടതി വ്യക്തമാക്കി സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ റഫേൽ ഇടപാട് അന്വേഷിക്കണമെന്നാവശ്യപ്പെടുന്ന എല്ലാ ഹർജികളും മൂന്നംഗ ബെഞ്ച് തള്ളി

അത്യാധുനിക യുദ്ധ വിമാനങ്ങൾ രാജ്യസുരക്ഷയ്ക്കാവശൃമാണെന്നും നാലും അഞ്ചും തല മുറ വിമാനങ്ങളുടെ ആവശ്യകത ചോദ്യം ചെയ്യാനാവില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി

എത്ര വിമാനങ്ങൾ വാങ്ങണമെന്ന് നിർദ്ദേശിക്കാനും കോടതിക്കാവില്ലെന്ന് വിധിന്യായത്തിൽ പറയുന്നു

റഫേൽ കരാറിനെപറ്റി മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാങ്കോ ഒലാന്തിന്റെ പ്രസ്താവനയുടെ പേരിൽമാത്രം നിയമനടപടി എടുക്കാനാ വില്ലെന്നും കോടതി വ്യക്തമാക്കി റഫേൽ ഇടപാടിൽ ഇന്ത്യൻ പങ്കാളി റിലയൻസിന് ഗവൺമെന്റ് പക്ഷപാതപരമായി ആനുകൂല്യങ്ങൾ നൽകി യെന്ന ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും കോടതി കണ്ടെ ത്തി വ്യോമസേന ഉപമേധാവിയും സഹമേധാവിയും കോടതിയിലെത്തി ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകി റഫേൽ കരാറുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പി ച്ചിരുന്നു റഫേൽ ഇടപാടിൽ പ്രധാനമന്ത്രിക്കും കേന്ദ്രത്തിനുമെതിരെ അടിസ്ഥാ നരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മാപ്പുപറയണമെന്ന് ബി

ആവശ്യപ്പെട്ടു പ്രധാനമ ന്ത്രിയുടെ സംശുദ്ധിയും വിശ്വാസൃതയും കോൺഗ്രസ് കളങ്കപ്പെടുത്താൻ ശ്രമിച്ചതായി ബിജെപി വക്താവ് ഷാനവാസ് ഹുസൈൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു എല്ലാ ഇടപാടുകളെയും ബൊഫോഴ്സ് ഇടപാടായി കാണുന്നതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യവും സംസ്കാരവുമെന്നും ഷാനവാസ് കുറ്റപ്പെടുത്തി കോടതി വിധിയെതുടർന്ന് ലോക്സഭയിലും ബിജെപി അംഗങ്ങൾ രാഹുൽഗാന്ധിയുടെ ക്ഷമാപണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തെ നേരിട്ടു സഭചേർന്ന ഉടൻ റഫേൽ ഇടപാടിലെ അഴി മതി അന്വേഷിക്കണമെന്നതുൾപ്പെടെ ആവശ്യങ്ങളുമായി പ്രതിപക്ഷം സഭ യുടെ നടുത്തളത്തിൽ ഇറങ്ങിയിരുന്നു ബഹളത്തെതുടർന്ന് ഉച്ചവരെ ലോക്സഭ നിർത്തിവെച്ചതായി സ്പീക്കർ സുമിത്രാ മഹാജൻ അറിയി ച്ചു റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട ബഹളത്തെതുടർന്ന് രാജ്യസഭ ഉച്ച വരെ നിർത്തിവെച്ചിരിക്കുകയാണ്

റഫേൽ കരാറിലെ എല്ലാ കാര്യങ്ങളും സുതാര്യമാണെന്ന് ആഭ്യന്ത രമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു സുപ്രീംകോടതി വിധിയോട് ന്യൂഡൽഹിയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ ആരോപണങ്ങളെല്ലാം അടിസ്ഥാന രഹിതവും രാഷ്ട്രീയനേട്ടം ലക്ഷ്യമി ട്ടതും ആണെന്ന് രാജ്നാഥ് സിംഗ് കുറ്റപ്പെടുത്തി ശരിയായ വിധിയാണ് സുപ്രീംകോടതിയുടേതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ കോടതിവിധി തെറ്റാണെന്നും പുനപരിശോധനാഹർജി നൽകുന്നതിനെപറ്റി ആലോചി ക്കു്മെന്നും അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൻ പ്രതികരിച്ചു

കോഴിക്കോട്ട് മോഹൻലാലിന്റെ പുതിയസിനിമ റിലീസ് ചെയ്ത തീയ്യറ്ററിലെ പ്രദർശനം ഹർത്താൽ അനുകൂലികൾ നിർത്തിച്ചു തിരുവനന്തപുരത്തും ഒരു തിയ്യറ്ററിലെ പ്രദർശനം പ്രതിഷേധത്തെതുടർന്ന് മാറ്റിവെച്ചു ഹർത്താലിൽ പ്രധാന വ്യവസായ വാണിജ്യ കേന്ദ്രമായ കൊച്ചിയിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുന്നു കൊച്ചി മെട്രോ സർവ്വീസിനെ ഹർത്താൽ ബാധിച്ചില്ല

എസ് ആർ

സി ബസുകളും സ്ഥകാര്യബസും കളും സർവ്വീസ് നിർത്തിവെച്ചു ടാക്സി വാഹനങ്ങളും ഓടുന്നില്ല

തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത വേണുഗോപാലൻനായരോട് ആദരസൂചകമായാണ് ബിജെപി പകൽഹർത്താലിന് ആഹ്വാനം നൽകിയത് ഹർത്താൽ പ്രഖ്യാപിച്ച് ബിജെപി നേതൃത്വം സ്വയം അപഹാസ്യരാ വുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഹർത്താൽ എന്തിനാണെന്നതിനെകുറിച്ച് നേതൃത്വം ആലോചിക്കണം തിരുവനന്ത പുരത്ത് മധ്യവയസ്കന്റെ മരണം നിർഭാഗൃകരമാണ് ഇയാളുടെ മരണ മൊഴിയിൽ ബിജെപി പറയുന്ന തരത്തിൽ കാര്യങ്ങളില്ലെന്ന് ഡോക്ടറു ടെയും മജിസ്ട്രേറ്റിന്റെയും റിപ്പോർട്ടിൽ വൃക്തമാണ് നാടിന്റെ പുരോ ഗതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതു സംബന്ധിച്ച് ബിജെപി കേന്ദ്രനേ തൃത്വം പുനരാലോചന നടത്തണമെന്ന് മുഖ്യമന്ത്രി ന്യൂഡൽഹിയിൽ പറ ഞ്ഞു വേണുഗോപാലൻ നായരുടെതെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന മര ണമൊഴി കെട്ടുകഥയാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധരൻപിള്ള പറഞ്ഞു പൊലീസ് മെഡിക്കൽ സംവിധാനങ്ങളാണ് ഈ കെട്ടുകഥ ഉണ്ടാക്കിയതെന്നും ഇതിനെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി യാണ് സ്വയം അപഹാസ്യനാവുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു വേണുഗോപാലൻനായർ മജിസ്ട്രേറ്റിനും ഡോക്ടർക്കും മരണമൊഴി നൽകിയെന്ന വെളിപ്പെടുത്തൽ വിശ്വസിക്കാനാവില്ലെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം

രമേശും അഭിപ്രായപ്പെട്ടു സമര പന്തലിൽ നിരാഹാരം അനുഷ്ടിക്കുന്ന സി

പത്മനാഭന് മുന്നിൽ വെച്ച് അയ്യപ്പനുവേണ്ടി ഇത്രയേ ചെയ്യാനാവൂ എന്ന് വേണുഗോപാലൻനായർ പറഞ്ഞത് നിരവധി ബിജെപി പ്രവർത്തകർ കേട്ടതാണെന്നും രമേശ് തിരുവനന്തപുരത്ത് പറഞ്ഞു ബിജെപി ആഹ്വാനം ചെയ്ത ഹർത്താൽ ജനം തള്ളിക്കളഞ്ഞതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു ഏതുവിധത്തിലും ബലി ദാനികളെ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് ബിജെപിയെന്നും മരിച്ച വേണുഗോപാലൻ നായരുടെ കുടുംബം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കു ന്നവരാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

എം പൊളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നാളെയും മറ്റന്നാളുമായി ചേരുന്ന കേന്ദ്രകമ്മിറ്റിക്കുമുന്നോടിയാണ് പി

യോഗം ചേരുന്നത് പൊതു തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾ ഷൊർണ്ണൂർ എം

ശശിക്കെതിരായ ലൈംഗിക പീഡന പരാതിയിൽ സംസ്ഥാന സമിതി സ്വീകരിച്ച നടപടികൾ തുടങ്ങിയവ ചർച്ച യ്ക്കുവരുമെന്നാണ് റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളോട് ജനങ്ങൾക്കുണ്ടായ അസംതൃ പ്തിയുടെയും അമർഷത്തിന്റെയും വ്യക്തമായ തെളിവാണ് മൂന്ന് സംസ്ഥാ നങ്ങളിൽ ബിജെപിക്കേറ്റ പരാജയമെന്ന് സി

എം

പ്രാദേശികമായ അതൃപ്തി കളും ദളിത് സമൂഹത്തിനു നേരെയുണ്ടായ അക്രമങ്ങളും മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ തെരഞ്ഞെ ടുപ്പിൽ പ്രതിഫലിച്ചതായും അദ്ദേഹം പറഞ്ഞു

സി സി പ്രസിഡന്റുമായ കമൽനാഥ് തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും

രാജ സ്ഥാനിലും ഛത്തീസ്ഗഡിലും മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുക്കാൻ ചർച്ച കൾ തുടരുകയാണ് രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിനാണ് മുൻതൂ ക്കം ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ രാഹുൽഗാന്ധി തീരുമാനമെടുക്കുമെന്ന് എ ഐ

സി നിരീക്ഷകൻ മല്ലികാർജ്ജുൻ ഗാർഗെ ന്യൂഡൽഹിയിൽ അറിയിച്ചു രണ്ടിടത്തെയും തീരുമാനം ഇന്നു ണ്ടാകുമെന്നാണ് റിപ്പോർട്ട് മിസോറാം മുഖ്യമന്ത്രിയായി മിസോ നാഷണൽ ഫ്രണ്ട് അധ്യക്ഷൻ സൊറാം താംഗ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും

ടോസ് നേടിയ ഓസ്ട്രേലിയ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ഭുവനേശ്വറിൽ ലോകകപ്പ് പുരുഷ ഹോക്കി സെമി ഫൈനൽ മത്സ രങ്ങൾ നാളെ നടക്കും ആദ്യ സെമിയിൽ ഇംഗ്ലണ്ട് ബെൽജിയത്തെയും ഓസ്ട്രേലിയ നെതർലന്റ് സ്പിനെയും നേരിടും

കഴിഞ്ഞ വർഷം മീറ്റിൽ കേരളം ഒന്നാമ തായിരുന്നു

ഗോവ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈ റ്റഡിനെ നേരിടും

സീസ ണിലെ കേരളത്തിന്റെ ആറാമത്തെ മത്സരമാണ് തിരുവനന്തപുരത്ത് നട ക്കുന്നത് ഗ്രൂപ്പിൽ കേരളം രണ്ടാം സ്ഥാനത്താണ് മധ്യപ്രദേശാണ് ഒന്നാം സ്ഥാനത്ത്

സി എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിടണമെന്ന ഉത്തരവ് തിങ്കളാഴ്ചയ്ക്കകം നടപ്പാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശി ച്ചു

ഉത്തരവ് നടപ്പാക്കുന്നതിന് കെ എസ്

നൽകിയ സാവ കാശഹർജി ഹൈക്കോടതി അനുവദിച്ചില്ല മതവികാരം വ്രണപ്പെടുത്തിയെന്ന കേസിൽ അറസ്റ്റിലായ രഹ്ന ഫാത്തിമ്മയ്ക്ക് ഹൈക്കോടതി സോപാധിക ജാമ്യം അനുവദിച്ചു പമ്പ സ്റ്റേഷൻ പരിധിയിൽ രണ്ട് മാസത്തേക്ക് കയറരുത് മതവികാരം പ്രണ പ്പെടുത്തുന്ന പോസ്റ്റുകൾ ഇടരുത് എന്നീ നിബന്ധനകളോടെയാണ് ജാമ്യം

ഉച്ചകഴിഞ്ഞ് രണ്ടിന് പാലക്കാട്ട്നിന്നായിരിക്കും ഉദ്ഘാടന സർവ്വീസ് ആരം ഭിക്കുക

ആറളം ഫാമിൽ ജനവാസമേഖലയിലിറങ്ങിയ പത്തോളം ആനകളെ കാട്ടിലേക്ക് തിരിച്ചയച്ചു

മാലിന്യങ്ങൾ നിക്ഷേപിച്ച സ്ഥലത്താണ് സ്ഫോടനം നടന്നത് സമീപത്തെ കെട്ടിടത്തിന് വിള്ളലുണ്ടായി

പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറബിക് യൂണിറ്റ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാ ടനം നാളെ കോഴിക്കോട്ട് നടക്കും

മുനീർ എം

എ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു

ഊർജ്ജ കാര്യക്ഷമത ഉയർത്തി വിവിധ മേഖലകളിൽ വളർച്ച നേടുക എന്നതിനൊപ്പം വരുംത ലമുറകൾക്കായി ഊർജ്ജ സംരക്ഷണം ശീലമാക്കുക എന്ന സന്ദേശമു യർത്തിയാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്

മണി വിതരണം ചെയ്യും കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളജിന്റെ അനുബന്ധമായി തുടങ്ങുന്ന സമ്പൂർണ്ണ ഓട്ടിസം സെന്റർ അടുത്തമാസം ആദ്യം പ്രവർത്ത നമാരംഭിക്കും

അഷ്റഫ് പറഞ്ഞു ബംഗാൾ ഉൾക്കടലിൽ രൂപംകൊണ്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറി യേക്കാമെന്ന് കാലാവസ്ഥാ പ്രവചനം ഫെതായ് എന്ന് പേരിട്ടിരിക്കുന്ന ചുഴലിക്കാറ്റ് രണ്ട് ദിവസത്തിനകം തമിഴ്നാടിന്റെ വടക്കൻ തീരത്തിനും ആന്ധ്രയുടെ തെക്കൻ തീരത്തിനും ഇടയിൽ എത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചെന്നൈയിൽ അറിയിച്ചു